പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ റാഞ്ചിയിൽ തുടക്കം

യോഗ ആരോഗ്യ പദ്ധതികളുമായി സമന്വയിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു

ഇതിൽ പങ്കാളികളാകാൻ ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് കേന്ദ്രം താൽപര്യ പത്രം ക്ഷണിച്ചു

യോഗ പുരാതനവും അതേസമയം ആധുനികവുമാണ് അത് സ്ഥിരവും എന്നാൽ വികാസം പ്രാപിക്കുന്നതുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒഴിവാക്കാനാവാത്ത ദിനചര്യയായി യോഗയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു കൂടുതൽ വിവരങ്ങളുമായി നവനീത

ഇവിടെ പ്രഭാത് താര മൈതാനിയിൽ മുപ്പതിനായിരം പേർ പങ്കെടുക്കുന്ന യോഗയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംബന്ധിക്കുന്നു രാജ്യത്തും വിദേശത്തുമായി നിരവധി പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്

ഡൽഹി മുൻസിപ്പൽ കോർപ്പറേഷൻ ആയുഷ് മന്ത്രാലയവുമായി സഹകരിച്ചാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത് പാർലമെന്റുംഗങ്ങൾക്കായി പാർലമെന്റ് മന്ദീരത്തിലും യോഗ നടത്തുന്നുണ്ട് കേരളത്തിൽ സംസ്ഥാനതല ദ്രിനാച്ചരണം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നു

യോഗക്ക് സംസ്ഥാന വ്യാപകമായി പ്രചാരണം നൽകുമെന്നും ജാതിയും മതവും ഇല്ലാത്ത ഒന്നാണ് യോഗയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

വിദ്യാർത്ഥികൾക്ക് മാനസിക ഉല്ലാസം പകരുമെന്നും തിരുവനന്തപുരത്ത് യോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു

ത്രിപുരയിൽ അഗർത്തല ഉമാകാന്ത അക്കാദമി മൈതാനിയിലാണ് യോഗാ ദിനാചരണം അയൽ രാജ്യങ്ങളായ നേപ്പാളിലും ശ്രീലങ്കയിലും വിവിധയിടങ്ങളിൽ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്

ഗുജറാത്തിലെ ലൈഫ് മിഷൻ സ്ഥാപകൻ സ്വാമി രാജർഷി മുനി ഇറ്റലിയിലെ അന്റോണിയേറ്റ റോസി എന്നിവർക്ക് വ്യക്തിഗത പുരസ്ക്കാരവും ബിഹാറിലെ സ്കൂൾ ഓഫ് യോഗ ജപ്പാനിലെ ജപ്പാൻ യോഗ നികേതൻ എന്നീ കേന്ദ്രങ്ങൾക്കുമാണ് പുരസ്ക്കാരം ലഭിക്കുന്നതെന്ന് ആയുഷ് മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു

അബുദാബിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്

എ ഇ മന്ത്രി ഷെയ്ക്ക് നഹ്യാൻ ബിൻ മുബാറക്ക് അൽനഹ്യാൻ മൂഖ്യാതിഥിയായി പങ്കെടുത്ത ചടങ്ങിൽ യു എ ഇ ഗവൺമെന്റില്ലെ ഉന്നത ഉദ്യോഗസ്ഥരും മുതിർന്ന നയതന്ത്രപ്രത്യിനിധികൾ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുളള പ്രിമുഖവൃക്തികൾ തുടങ്ങിയവരും പങ്കെടുത്തു അബുദാബിയില്ലെ പത്ത് യോഗാസ്കൂളുകൾ വിവിധ യോഗാഭ്യാസ മുറകൾ അവത്തിപ്പിച്ചു

പതിനാറാം ലോക്സഭയിൽ അവതരിപ്പിച്ച മുത്തലാഖ് നിരോധന ഓർഡിനൻസാണ് ഇപ്പോൾ പുതുക്കിയ ബില്ലായി അവതരിപ്പിക്കുന്നത്

കേന്ദ്ര ബഡ്ജറ്റിനു മുന്നോടിയായാണ് യോഗ സംഘടിപ്പിച്ചിരിക്കുന്നത്

നേരത്തേ സാമ്പത്തികവിദഗ്ദ്ധരും അടിസ്ഥാനസൌകരൃം കൃഷി ധനകാരൃം വിപണി ഗ്രാമവികസനം തുടങ്ങിയി വിവിധ മേഖലകളിലെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി ചർച്ച നടത്തിയിരുന്നു

ഇന്നലെ വൈകിട്ട് കുളുവിനടുത്ത് ബൻജാറിലാണ് സ്വകാര്യ ബസ് കൊക്കയിലേക്ക് നിയന്ത്രണം വിട്ടു മിറഞ്ഞത്

മരണസംഖ്യ ഇനിയും ഉയരാനിടയുണ്ട് ഗവർണർ അചാര്യ ദേവപ്രത് മുഖ്യമന്ത്രി ജയ്റാം താക്കൂർ എന്നിവർ ദുരന്തത്തിൽ അനുശോചിച്ചു

ജെ പി എം പി പ്രഗ്യാ സിങ്ങിന്റെ അപേക്ഷ മഹാരാഷ്ട്രയിലെ പ്രത്യേക എൻ ഐ

പി ആയതിനാൽ പാർലമെന്റിൽ പങ്കെടുക്കണം

ഇതിനാൽ പങ്കാളിയാകാൻ ശേഷിയുള്ള ഇന്ത്യൻ കമ്പനികളിൽ നിന്നും നാവിക സേന താൽപര്യപത്രം ക്ഷണിച്ചു

രണ്ടാമത്തെ പങ്കാളിത്ത പദ്ധതിയാണിത്

സി എസ് ഇ സി ബി എസ് സി സ്കൂളുകളിലും നിയമം ബാധകമാക്കും

മറാഠിഭാഷ പഠിപ്പിക്കണമെന്ന നിയമം നിലവിലിരിക്കെ ചില വിദ്യാലയങ്ങൾ ഇതു പാലിക്കുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെത്തുടർന്നാണ് നിയമം കർശനമാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് ഒരുങ്ങുന്നത്

സംസ്ഥാന ആരോഗ്യമന്ത്രി നബ കിഷോർ ദദ് ഭുവനേശ്വരിൽ ആരോഗ്യ മേഖലയിലെ ജീവനക്കാരുടെ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്

ലോകകപ്പിൽ ഓസ്ട്രേലിയയിട്ടുടെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോറാണിത്

ബംഗ്ലാദേശിനു വേണ്ടി സൌമൃ സർക്കാർ ദ വിക്കറ്റ് വീഴ്ത്തി മറുപടി ബാറ്റിങ്ങിന്റിറ്റ്ങ്ങിയ് ബംഗ്ലാദേശിനെ മുഷ്ഫിഖർ റഹീമിന്റെ സെഞ്ചറിക്കും ക്ഷിക്കാനായില്ല

ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും

ക്രിക്കറ്റ് മൈതാനം അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു പരിക്ക് ഭേദമായി ഇനിയും രാജ്യത്തിനായി നേട്ടങ്ങൾ കൈവരിക്കാൻ അദ്ദേഹത്തിനാവുമെന്നും ശ്രീ

സി ലോകകപ്പിനിടെയാണ് ശിഖർ ധവാന് വിരലുകൾക്ക് പരിക്കേറ്റത്

ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തന്ത്രപ്രധാനമായ സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയുളള സന്ദർശനത്തിൽ വിദേശകാര്യമന്ത്രി എസ്

ഇന്നലെ ശ്രീ ജയ്ശങ്കറുമായി സംസാരിച്ച പോംപിയോ ഇന്ത്യയുമായി മികച്ച ബന്ധം നിലനിർത്തുന്നതിൽ ട്രംപ് ഗവൺമെന്റ് പ്രതിജ്ഞാബന്ധമാണെന്ന് അറിയിച്ചു